ഉച്ചസ്ഥായിയിൽ

അനർഹർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സിവിൽ സപ്ലൈസ് കമ്മീഷണർ

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബിഹാറിലും ജാർഖണ്ഡിലും പശ്ചിമബംഗാളിലും തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി പഞ്ചാബിൽ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കും

മുതിർന്ന് ബിജെപി നേതാക്കളായ സുഷമ സ്വരാജ് കൽരാജ് മിശ്ര ഏയാൾട്ടി ആദിത്യനാഥ് കേശവ് പ്രസാദ് മൌര്യ തുടങ്ങിയവർ ഇന്ന് വിവിധ് കാ്ലികളെ അഭിസംബോധന ചെയ്യും കോൺഗ്രസ്സ് ജനറൽ സെക്രട്ടറിയും കിഴക്കൻ യു പി യിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചുമതലയുമുള്ള ശ്രീമതി പ്രിയങ്കാഗാന്ധി ഇന്ന് സലേംപൂർ മണ്ഡലത്തിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്യും തുടർന്ന് വരാണസിയിൽ റോഡ്ഷോയിലും അവർ പങ്കെടുക്കും

ഐഎഎൻഎസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഇക്കണോമിക് ടൈംസ് സ്വരാജ്മാസ് മീഡിയ എന്നീ സ്ഥാപനങ്ങൾക്കാണ് നോട്ടീസ് നൽകിയത് ജനപ്രാധിനിത്യ നിയമലംഘനത്തിനെതിരെ നടപടിയെടുക്കാതിരിക്കാൻ കാരണം ആവശ്യപ്പെട്ടാണ് നോട്ടീസ്

തമിഴ്നാട് ഗുജറാത്ത് കേരളം പുതുച്ചേരി ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കും ചീഫ് ഇലക്ടറൽ ഓഫീസർമാർ ജില്ലാതല ഇലക്ഷൻ ഓഫീസർമാർ റിട്ടേണിംഗ് ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുക്കും

എന്നാൽ ബിജെപി അദ്ധ്യക്ഷൻ പുറത്തുനിന്നും എത്തിച്ചവർാണ് റോഡ് ഷോയിൽ അക്രമമുണ്ടാക്കിയതെന്ന് തൃണമൂൽ കോൺഗ്രസ്സ് പാർട്ടി വക്താവ് ഡെറിക് ഒ ബ്രെയ്ൻ ട്വിറ്ററിൽ കുറിച്ചു

ആർ ന്റെ ആലോചനാ യോഗത്തിൽ അദ്ധ്യക്ഷ സ്ഥാനത്തേക്ക് ഇന്ത്യയെ തെരഞ്ഞെടുത്തു ജനീവയിൽ നടക്കുന്ന യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത് കൂടുതൽ വിവരങ്ങളുമായി വി ഗോപകുമാർ

ലോകബാങ്കിന്റെ സഹായത്തോടെയാണ് ജി

ഇന്നലെ സ്വിറ്റ്സർലന്റിലെ ജനീവയിൽ നടന്ന സംഘടനയുടെ ആറാമത് യോഗത്തിലാണ് അടുത്ത സമ്മേളനത്തിൽ ഇന്ത്യയെ അദ്ധ്യക്ഷസ്ഥാനത്തേക്ക് തീരുമാനിച്ചത്

ദുരന്തനിവാരണ പ്രവർത്തനങ്ങളിൽ രാജ്യം നടത്തുന്ന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ലഭിച്ചതെന്ന് ഇന്ത്യ പ്രതികരിച്ചു ഇന്ത്യയിൽ നിന്നും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അംഗം ക്ലമൽ കിഷോർ ജോയിന്റ് സെക്രട്ടറി കുമാർ ജിന്റാൽ തുടങ്ങിയവർ പ്ട്യേഷ്ഠത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ന്യൂഡൽഹിയിൽ സമാപിച്ച ലോകവ്യാപാര സംഘടനയുടെ ദ്ദിദിന മന്ത്രിതല സമ്മേളനത്തി ലാണ് പ്രഖ്യാപനമുണ്ടായത്

വസ്തുതകൾ മറച്ചുവച്ച് മുൻഗണനാ പട്ടികയിൽ കടന്നുകൂടിയ അനർഹർക്കെതിരെ നിയമനടപടികൾ സ്വീകരിക്കുന്നതിനും അനർഹമായി ഉൾപ്പെട്ട കാലയളവിലെ റേഷൻ വിഹിതത്തിന്റെ കമ്പോളവില ഈടാക്കുന്നതിനും എല്ലാ ജില്ലാ സപ്ലൈ ഓഫീസർമാർക്കും താലൂക്ക് സപ്പൈ ഓഫീസർമാർക്കും നിർദ്ദേശം നൽകി പട്ടികയിലെ അനർഹർക്കെതിരെ പരാതി ഉയരുന്ന സാഹചര്യത്തിലാണ് നടപടി

മൊറട്ടോറിയം നിലനിൽക്കെ ജപ്തി നടപടികളുമായി മുന്നോട്ട് പോയ ബാങ്കിന്റെ നടപടിയെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു റവന്യൂ മന്ത്രിൂ ഇ ചന്ദ്രശേഖരൻ സംഭവത്തിൽ കളക്ടറുടെ അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്

എൽ ക്രിക്കറ്റ് ടൂർണമെന്റിനു പിന്നാലെ ലോകകപ്പിനുവേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ ഇംഗ്ലണ്ടിൽ നടക്കുന്ന ലോകകപ്പ് മൽസരങ്ങൾക്ക് മുന്നോടിയായി സന്നാഹ മൽസരങ്ങൾക്ക് ഒരുങ്ങുകയാണ് ഇന്ത്യ അടക്കമുള്ള ടീമുകൾ

ലണ്ടനിൽ നടക്കുന്ന മൽസരത്തിൽ ന്യൂസിലന്റാണ് എതിരാളി

ഒന്നര മാസം നീളുന്ന സുപ്രധാന ടൂർണമെന്റിൽ ജയിക്കാൻ ഇന്ത്യ സജ്ജമാണെന്ന് മുഖ്യ പരിശീലകൻ രവി ശാസ്ത്രി പറഞ്ഞു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ടൂർണമെന്റ് രണ്ടാം റൌണ്ടിൽ സെറീന സഹോദരിയായ വീനസ് വില്യംസിനെയാണ് നേരിടേണ്ടിയിരുന്നത്

മൂന്ന് മാസത്തിനകം കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബ്രോർഡിന് കർമപദ്ധതി സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട ട്രിബ്യൂണൽ അശ്ദൃക്ഷ്ടൻ ജസ്റ്റിസ് ആദർശ് കുമാർ ഗോയലിന്റെ നേതൃത്വത്തിലുള്ളിബെഞ്ച് ഈ നിർദ്ദേശം പാലിക്കാത്ത പക്ഷം നഷ്ടപരിഹാരമുൾപ്പെട്ടെയുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചു ഇതുവരെ ഒൻപത് സംസ്ഥാനങ്ങളും അഞ്ച് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് കർമ പദ്ധതി സമർപ്പിച്ചത്

തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടലംഘനം ചൂണ്ടിക്കാട്ടിയാണ് നടപടി വാരാണസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോഡിക്കെതിരെ സഞ്ജയ് നിരുപം വിവാദ പരാമർശം നടത്തിയതായി നോട്ടീസിൽ പറയുന്നു നോട്ടീസിന് ഇന്നുതന്നെ മറുപടി നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്

എസ്

നാഗ്പൂരിലെ ഒരു ഷോപ്പിംഗ് മാളും വ്യവസായ ആവശ്യത്തിനുള്ള ഭൂമിയും കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെടുന്നു

സംഘം ഇന്ന് ചീഫ് സെക്രട്ടറി ആദിത്യപ്രസാദ് പദ്ധി അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും വീടുകൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താനുള്ള നടപടികൾ സംസ്ഥാന ഗവൺമെന്റ് ഇന്ന് ആരംഭിക്കും

അമേരിക്കൻ പ്രസിഡന്റ് ഡ്ട്രേൺൾഡ് ട്രംപിനും ഇതേ ആഗ്രഹം ഉണ്ടായിരിക്കുമെന്നും അ്ദ്ദേഹ്ം പറഞ്ഞു

കൂടുതൽ ചർച്ചകൾക്കായി അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മൈക് പോംപിയോ റഷ്യയിൽ എത്തിയിട്ടുണ്ട്